നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നു നടന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച

നടക്കേണ്ടതെന്ന് പ്രധാനമ്ത്രി നരേന്ദ്രമോദി

സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി

സാമൂഹൃനീതിയിലൂടെ മാറ്റത്തിന് ആഹ്വാനം

കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

പ്രചാരണം ചൂടു പിടിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ രണ്ടു റാലികളെ അഭിസംബോധന ചെയ്തു

അക്തമായ തീരുമാനങ്ങളെടുക്കാനും ആഗോളതലത്തിൽ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടാനും ഇതാവശൃമാണെന്നും ശ്രീ മോദി പറഞ്ഞു ഭീകരവാദത്തോട് കോൺഗ്രസ് എസ് പി ബി

പി കക്ഷികൾക്ക് മൃദു സമീപനമാണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭീകരവാദികളെ അവരുടെ കേന്ദ്രത്തിൽ ചെന്ന് ആക്രമിക്കുന്ന പുതിയ ഇന്ത്യയാണിത് അവസരം കിട്ടിയാൽ ഭീകരവാദത്തിന്റെ രക്ഷകർത്താക്കളോട് ചർച്ച നടത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ബിജെപി ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതോടെ ഉത്തർപ്രദേശിൽ ഭയത്തിന്റെ അന്തരീക്ഷം അവസാനിച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

പൂനെയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം നോട്ടു നിരോധനം മൂലം രാജ്യത്ത് ഒട്ടേറെ പേർക്ക് തൊഴിലും സ്ഥിര വരുമാനവും നഷ്ടമായി

അന്വേഷണങ്ങളിലെ തെളിവുകളാണ് രാഹുൽ ഗാന്ധിയുടെ പേര് ഈ കേസിൽ കൊണ്ടു വന്നത്

പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന വ്യക്തി ആരോപണങ്ങൾക്ക് മറുപടി പറയണമെന്നും അരുൺജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു

മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അവ്യക്തത നീക്കണമെന്ന് ഇൻഡോറിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ എട്ട് തവണയും ഇൻഡോറിനെ പ്രതിനിധീകരിച്ചത് ശ്രീമതി സുമിത്രാ മഹാജനാണ്

ബിഎസ്പിയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം കോൺഗ്രസിൽ എത്തിയത് എഐസി അറിയിച്ചതാണ് ഇക്കാര്യം മധ്യപ്രദേശിലെ മൊറേന മണ്ഡലത്തിൽ റാംനിവാസ് റാവത്തായിരിക്കും സ്ഥാനാർത്ഥി

വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും റിസർവ്വ് ബാങ്കും വളർച്ചാ നിരക്കിലെ കുറവും പണപ്പെരുപ്പത്തിലെ വർദ്ധനയും ശ്ശരി വച്ചിട്ടുളളതായും കോൺഗ്രസ് വക്താവ് രൺദീപ് സുർ ജേജപ്ാല വൃക്തമാക്കി

തെരഞ്ഞെടുപ്പിനായി കൂടുതൽ പൊലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യമുള്ളതിനാലാണ് സുരക്ഷാസേനയെ പിൻവലിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം

വായ്പകൾ എഴുതിതള്ളിയാൽ മാത്രമേ കർഷകർക്ക് സന്തോഷമുണ്ടാകൂ എന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പാർട്ടി അദ്ധ്യക്ഷൻ അഖിലേഷ് യാദവ് ലഖ്നൌവിൽ പറഞ്ഞു

ധനികരെ കൂടുതൽ ധനികരാക്കുകയും ദരിദ്രരെ ദാരിദ്ര്യത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ജിഎസ്ടി പോലെയുള്ള നയങ്ങളാണ് ബിജെപി നടപ്പാക്കുന്നതെന്ന് ശ്രീ അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി

തങ്ങളുടെ ചിഹ്നവുമായി സാമ്യമുണ്ടെന്ന ജനതാദൾ യുണൈറ്റഡിന്റെ പരാതിയിൻമേലാണ് നടപടി

ന്റെയും ശിവസേനയുടെ ചിഹ്നങ്ങൾ

സംസ്ഥാനത്തെ നിരക്ഷരരായ വോട്ടർമാരിൽ ചിഹ്നങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ജെ

യു നേതാവ് രാജീവ് രൺജൻ നേരത്തെ പരാതിപ്പെട്ടിരുന്നു

വിശദീകരണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഭൂവികസന കാര്യാലയത്തിന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു കോൺഗ്രസ് ഉടമസ്ഥതയിലുള്ള നാഷണൽ ഹെറാൽഡ് കെട്ടിടം അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നു എന്നു കാട്ടി ബിജെപി നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയാണ് പരാതി നല്കിയത്

ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയുന്തരാവസ്ഥയിൽ ഒട്ടേറെ കഷ്ടത അനുഭവിച്ചവരാണ് രാജ്യത്തുള്ളത് എന്നാൽ എൻഡിഎ ഗവണ്മെന്റിന്റെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ മൂലം രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് രാജ്യത്തുണ്ടായതെന്ന് മായാവതി സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ ആരോപിച്ചു

കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ചാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടപടിയെടുത്തത്

സ്റിന്ധു സൈനാ നെഹ്വാൾ എച്ച്

പ്രണോയ് എസ്ട്രീ ഇന്ത്യൻ താരങ്ങൾ നേരത്തേ ടൂർണമെന്റിൽ നിന്ന് ഫ്ലിറത്തായിരുന്നു

തുടക്കത്തിൽ തന്നെ ഗോൾ നേടാനും അതുവഴി എതിരാളികളുടെമേൽ ആധിപത്യം നേടാനുമാണ് ഇന്ത്യ ശ്രമിക്കുകയെന്ന് മുഖ്യ പരിശീലക മെയ്മോൾ റോക്കി പറഞ്ഞു മത്സരത്തിൽ ഇരുടീമുകൾക്കും തുല്യ പോയിന്റാണുള്ളത്

ഇന്നലെ ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ സൺറൈഡേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു